ലോകത്ത് ഏറ്റവും കുറവ് കോവിഡ് മരണ നിരക്കുള്ള രാജൃങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

കേരളത്തിൽ അടുത്ത ഒരാഴ്ച കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ വൃക്തിയും സ്ഥയം ലോക്ഡൌണിലേക്ക് പോകണമെന്നും മുഖൃമന്ത്രി

എല്ലിൽ ആദ്യ മൽസരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം രണ്ടാം മൽസരത്തിൽ ടോസ് നേടിയ ഡൽഹി കൊൽക്കത്തയെ ബാറ്റിങ്ങിനയച്ചു

അതേസമയം കോവിഡ്മൂലമുള്ള ഓരോ മരണവും ദൂരന്തവും വേദനിപ്പിക്കുന്നതൂമാണെന്നും അദ്ദേഹം പറഞ്ഞു

വാക്സിനേഷൻ മെയ് മഹാമാരിക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുമെന്നും സാഹചര്യം നേരിടാൻ എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുമെന്നും ഡോ ഹർഷവർദ്ധൻ വ്യക്തമാക്കി

കരസേന മേധാവി എം

നരവനേയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി വിവിധ സംസ്ഥാന സർക്കാരുകൾക്കായി സേനയുടെ ആരോഗൃ പ്രവർത്തകരെ ലഭ്യമാക്കിയതായി ജനറൽ നരവനെ പ്രധാനമന്ത്രിയെ അറിയിച്ചു രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ സേന താത്കാലിക ആശുപത്രികൾ നിർമ്മിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സേന ആശുപത്രികൾ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ഓക്സിജൻ ഇറക്കുമതി ചെയ്യുന്നതിനും വാഹന സൌകര്യത്തിനുമായി സേന അംഗങ്ങളെ ഉപയോഗിച്ചുവരുന്നതായും കരസേന മേധാവി വൃക്തമാക്കി

മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൂൾ എന്നിവയാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേയ്ക്ക് എത്തിക്കുക

മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളുമായുള്ള കപ്പലുകൾ രാജ്യത്തേയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഖ്ള അറിയിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ചയിൽ അമേരിക്കയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി മൂന്ന് വിമാനങ്ങൾ ഇന്ത്യയിലേയ്ക്ക് എത്തിച്ചേരും ഇതിൽ രണ്ടെണ്ണം നാളെ എത്തുമെന്നും ശ്രീ

വെന്റിലേറ്ററുകളും മരുന്നുകളുമായി ഒരു വിമാനം യു എ ഇ

രാജൃത്ത് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ വിതരണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും ്വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി

ഇന്ത്യയ്ക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കാമെന്ന് വിവിധ ആഗോള മരുന്നു നിർമ്മാണ കമ്പനികൾ ഉറപ്പു നൽകിയിട്ടുള്ളതായി ശ്രീ

ഇന്ത്യയ്ക്കായി അവശൃ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും നൽകാൻ ബംഗ്ലാദ്ദേശും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിൻ പോർട്ടലിന് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നും ഇല്ലെന്നും സർക്കാർ അറിയിച്ചു

ടി

സി ആർ പരിശോധന ലബോറട്ടറി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി ഉദ്ഘാടനം ചെയ്തു

ഇരുവരുടെയും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നതായും എത്രയും വേഗം രോഗമുക്തി നേടട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഏറ്റവും കൂടുതൽ രോഗബാധിതർ എറണ്ണാകുളത്തും കോഴിക്കോടുമാണ്

ടിവി സീരിയൽ ഷൂട്ടിംഗ് താത്ക്കാലികമായി നിർത്തിവയ്ക്കാനും ത്രീരുമാനമായി

രണ്ടാം ഡോസ് വാക്റ്സിൻ എടുക്കാനുള്ള എല്ലാവർക്കും മുൻഗണനയനുസരിച്ച് നൽകിത്തീർക്കുമെന്ന് ആരോഗ്യ മന്ത്രി കെ

രണ്ടാം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ആറ് മുതൽ എട്ട് ആഴ്ചയ്ക്കുള്ളിലും കോവാക്സിൻ നാല് മുതൽ ആറ് ആഴ്ചയ്ക്കുള്ളിലുമാണ് എടുക്കേണ്ടത്

ട്രെയിനുകളുടെ ഇടവേളകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്

ദേശീയ തലസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതും സർക്കാരിന്റെയും ലഫ്റ്റനന്റ് ഗവർണറുടെയും ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നതുമാണ് ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പ്രസ്താവനയിൽ വൃക്തമാക്കി

രണ്ടാം മൽസരത്തിൽ ടോസ് നേടിയ ഡൽഹി കൊൽക്കത്തയെ ബാറ്റിങ്ങിനയച്ചു